അതിർത്തി കടന്നുള്ള തീവ്രവ്യ്ദ് പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാൻ ്നില്പാടിൽ ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തി

വിദേശകാര്യ മന്ത്രി എസ്

കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷമുള്ള തൊഴിൽ സാധ്യതകളും ഉച്ചകോടി വിലയിരുത്തും ഇരു രാജ്യത്തെയും സർക്കാർ വ്യാപാര പ്രതിനിധികളും ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും

ലോകത്ത് ടിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോള്ചോവേഴ്സുള്ള ലോക നേതാക്കളിൽ മോദി മൂന്നാം സ്ഥാനത്താണുള്ളത്

പാക് ഹൈക്കമ്മീഷൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് വെള്ളിയാഴ്ച രാത്രി ജമ്മു കശ്മീരിലെ കൃഷ്ണ ഘാട്ടി പ്രദേശത്താണ് ആക്രമണം നടന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്

അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് പാകിസ്ഥാൻ പിന്തുണ തുടരുന്നതിലും ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തി

് കോവിഡിനെ തുടർന്നുണ്ടായ സാഹചര്യം പാർലമെന്റ് പരിശ്രോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു

പിന്നീട് ഇതുവരെ സഭ ചേർന്നിട്ടില്ല കോവിഡ് മഹാമാരിയെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് പ്രധാനമാണെന്നും ശ്രീ

തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പരത്തുന്ന ചില മാധ്യമങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം

പൌരാവകാശ ങ്ങൾ അഹിംസ ഗാന്ധിയൻ മൂല്യങ്ങൾ എന്നിവയുടെ പ്രചാരകനായി രുന്നു അദ്ദേഹമെന്ന് ശ്രീ നരേന്ദ്ര മോദി ട്വീറ്റ് ചെയ്തു ജോൺ ലൂയിസിന്റെ ജീവിതം ജനങ്ങൾക്ക് പ്രചോദകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

തമിഴ്നാട് സ്വീകരിച്ച കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചു

പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിക്ക് ്ക്ക്യൂട്ടം എല്ലാവിധ സഹായവും നൽകുമെന്നും മുഖ്യമന്ത്രിക്ക് ട്രപ്ൽാനമന്ത്രി ഉറപ്പു നൽകി

കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇതിനായി നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും നല്ല സൂചനകളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു മഹാമാരിക്കെതിരെ പൂർണമായും വിജയിക്കാൻ ഇന്ത്യയ്ക്ക് ഉടൻ തന്നെ സാധിക്കുമെന്നും ശ്രീ

ഇതു സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഐ

എം ആർ നിരീക്ഷിച്ചു വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി

കോവാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണത്തിനായി ഐ

സി ജി പ്രാക്സിനുകളുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായി ഇന്ത്യൻ ക്ക്കൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പഠനം നടത്തും

തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് രൂജ്സ്ഥാൻ ഡൽഹി എന്നീ ആറ് സംസ്ഥാന ങ്ങളിലായിട്ടാകും പഠനം ചെന്നൈയിലുള്ള ഐ

എം ആർ ന്റെ ക്ഷയരോഗ ഗവേഷണ കേന്ദ്രമാണ് പഠനത്തിന് നേതൃത്വം നൽകുന്നത്

കേന്ദ്ര സർക്കാറിന്റെയും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാറുകളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഇത് സാധ്യമായത് രോഗനിയന്ത്രണം വൃാപക പരിശോധന ചികിത്സാ മാനദണ്ഡങ്ങൾ എന്നിവയുടെ കൃത്യമായ സമീപനത്തിലൂടെയാണ് മരണനിരക്കു ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞത് നിലവിൽ ലോകത്ത് കോവിഡ് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ

സമ്പർക്കബാധിതരുടെ എണ്ണത്തിലും വർധനയുണ്ട്

ഇന്ന് രണ്ട് കോവിഡ് മരണവും സ്ഥിരീകരിച്ചു

കോവിഡ് സ്ഥിരീകരിച്ച് കണ്ണൂർ ജില്ലയിൽ ചികിത്സലായിരുന്ന കാസർഗോഡ് ഉപ്പള സ്വദേശിനി നഫീസ ആലുവ സ്വദേശി കുഞ്ഞുവീരൻ എന്നിവരാണ് മരിച്ചത്

മരണസംഖ്യ ആറു ലക്ഷം കടന്നു